ഉൾപ്പെടെ ജനാധിപത്യ സ്ഥാപനങ്ങ ളെയും കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്നത് പ്രതിസന്ധിക്ക് പരിഹാ രമാവില്ലെന്ന് നിതി അയോഗ് ജമ്മുകശ്മീരിൽ രാഷ്ട്രപതിഭരണം നിലവിൽവന്നു നവോത്ഥാന കേരള സംരക്ഷണത്തിന് എതിരായ നീക്കങ്ങൾ വില പ്പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

എസ് ആർ ടി സി യിലെ പ്രതിസന്ധി തുടരുന്നു പുതിയ കണ്ട ക്ടർമാർ ഇന്ന് ചുമതലയേൽക്കാൻ നിർദ്ദേശം ചലച്ചിത്ര നാടക നടൻ ഗീഥാ സലാമിന്റെ ഖബറടക്കം ഇന്ന് സൈന്യവും സി

ജിയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ജനാധിപത്യ സ്ഥാപനങ്ങളെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി റഫേൽ ഇടപാടിൽ സുപ്രീംകോടതി ശരി വെച്ചിട്ടുപോലും തനിക്കിതിരായ അധിക്ഷേപം കോൺഗ്രസ് തുടരുക യാണെന്ന് അദ്ദേഹം തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലും ബി

പ്രവർത്തകരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിങിൽ പറ ഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാവില്ലെന്ന് വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് ഇലക്ട്രോണിക് വോട്ടിങ് യന്ത്രങ്ങളിലെ കൃത്രിമം ഉന്ന യിക്കുകയും ഫലം അവർക്ക് അനുകൂലമാവുമ്പോൾ ആരോപണം മറ ക്കുകയുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമായിരിക്കും കടം എഴുതിത്തള്ളുന്നതിന്റെ ഗുണം ലഭി ക്കുകയെന്നും നിതി അയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു എന്നാൽ കടുത്ത കാർഷിക പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഹ്രസ്വകാല പരിഹാര നടപടികൾ ഗവൺമെന്റുകൾക്ക് സ്വീകരിക്കാവുന്നതാണെന്നും വൈസ് ചെയർമാൻ വ്യക്താക്കി ജമ്മുകശ്മീരിൽ രാഷ്ട്രപതിഭരണം നിലവിൽവന്നു ആറുമാസത്തെ ഗവർണർ ഭരണം അവസാനിച്ച കഴിഞ്ഞ അർധരാത്രിയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്

ഡി

ക്ക് ബി ജെ

പിന്തുണ പിൻവലി ച്ചതിനെത്തുടർന്ന് സഖ്യ ഗവൺമെന്റിന് അധികാരം നഷ്ടമായിരുന്നു

നവോത്ഥാന കേരളം സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നട ത്തുന്ന ശ്രമങ്ങൾക്കെതിരായ കണ്ണുരുട്ടലും ഭീഷണിയും വിലപ്പോകി ല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി എല്ലാ തെറ്റായ കാര്യങ്ങളെയും കേരളം സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കു മെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് സംസ്ഥാന ന്യൂനപക്ഷക്ഷേമവ കുപ്പ് സംഘടിപ്പിച്ച ന്യൂനപക്ഷദിനാഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്ത് മതനിരപേക്ഷത ഇല്ലാതാക്കാൻ ശക്ത മായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു

എസ് എസിന്റെ വർഗീയ പരിപാടിയായ അയ്യപ്പജ്യോതി വിജ യിപ്പിക്കാൻ ആഹ്വാനം ചെയ്തതിലൂടെ എൻ എസ് എസിനെ സംഘപ രിവാറിന്റെ തൊഴുത്തിൽ കെട്ടുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുന്നതെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരിശോധിക്കണമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവ ശ്യപ്പെട്ടു കേരളത്തിൽ മതനിരപേക്ഷ നവോഥാന സമൂഹ സൃഷ്ടിക്ക് എൻ എസ് എസ് വലിയ പങ്കാണ് വഹിച്ചത് മന്നത്ത് പത്മനാഭന്റെ ആ പാരമ്പര്യം എൻ എസ് എസ് നിലനിർത്തണമെന്ന് കോടിയേരി ആവശ്യ പ്പെട്ടു

എസ്

ടി സിയിലുണ്ടായ പ്രതിസന്ധി തുടരുന്നു

അവധിയെടുത്ത സ്ഥിരം ജീവനക്കാരായ കണ്ടക്ടർമാരോട് ഉടൻ ജോലിക്കെത്താൻ കോർപ്പറേ ഷൻ നിർദ്ദേശം നൽകി

ഹൈക്കോടതി വിധി അനുസരിച്ച് പി എസ് സി അഡൈസ് ചെയ്ത പുതിയ കണ്ടക്ടർമാർ ഇന്ന് ചുമതലയേൽക്കും

ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കാത്തവരോടും ഇന്ന് തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടു ണ്ട് ഗവൺമെന്റും കെ

ടി സി മാനേജ് മെന്റും എംപാനൽഡ് ജീവനക്കാരെ കബളിപ്പിക്കുകയാണെന്ന് എം പാനൽഡ് കൂട്ടായ്മ സംസ്ഥാന ജനറൽസെക്രട്ടറി എം

എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരേ സംഘടിപ്പി ക്കുന്ന ലോങ് മാർച്ച് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ ലോങ് മാർച്ച് തിങ്കളാഴ്ച സെക്രട്ടറിയേറ്റി ലെത്തി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും

എസ്

ജോലി തിരികെനൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്

ജെ

ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി ഭാരവാഹി യോഗങ്ങളാണ് ഇതുസംബന്ധിച്ച തീരുമാനമെടുത്തത് പത്തു ദിവസമായി നിരാഹാരമനുഷ്ഠിച്ചിരുന്ന സി

പത്മനാഭനെ ആശുപ ത്രിയിലേക്ക് മാറ്റിയതിനെത്തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ നിരാഹാരസമരം ആരംഭിച്ചു

ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽനിന്നും കെ എസ്

ടി സി റവന്യു ഉദ്യോ ഗസ്ഥരിൽനിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചു ഇന്ന് പത്തനംതിട്ട ഗസ്റ്റ്ഹൌസിൽ സംഘം സിറ്റിങ് നടത്തും ഹർത്താലിനെതിരായ കൂട്ടായ്മയും കർമസമിതിയും രൂപീകരിക്കു ന്നതിന്റെ ആലോചനായോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് ചേരും

വ്യാപാരി വ്യവസായ സമിതിയും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദേശീയപാതയിലെ കോഴിക്കോട് എലത്തൂർ കോരപ്പുഴപാലം പൊളി ക്കൽ ഇന്ന് തുടങ്ങും

അതുവരെ വാഹനഗതാഗതം പാവങ്ങാട് വെങ്ങളം വഴി തിരിച്ചുവിട്ടു ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടൻ ഗീഥ സലാമിന്റെ മൃത ദേഹം ഇന്ന് രാവിലെ ഓച്ചിറ വടക്കേ ജമാഅത്ത് പള്ളി ഖബറിസ്ഥാ നിൽ ഖബറടക്കും

നിര വധി സീരിയലുകളിലും നാടകങ്ങളിലും അഭിനയപ്രതിഭ തെളിയിച്ച അദ്ദേഹത്തിന്റെ അഭിനയജീവിതം കോട്ടയം നാഷണൽ തീയ്യറ്റേഴ്സിലൂ ടെയായിരുന്നു

ഇതിനുശേഷമാണ് അബ്ദുൾസലാം ഗീഥാ സലാം എന്ന പേര് സ്വീകരി ച്ചത്

പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് പരാജയപ്പെ ട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ കുറ്റപ്പെ ടുത്തി വർഗീയ മതിൽ നിർമാണം നിർത്തി പ്രളയബാധിതരെ ജീവിത ത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രളയബാധിതരെ സഹായിക്കാനായി സംഘ ടിപ്പിച്ച സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല

തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് പ്രസിദ്ധീകരി ക്കുന്ന എഴുത്തച്ഛന്റെ മഹാഭാരതം സംശോധിത പതിപ്പിന്റെ പ്രകാശന ത്തോട് ബന്ധപ്പെട്ടാണ് മഹാഭാരതമേള സംഘടിപ്പിക്കുന്നത് മേള ശ്രീല ങ്കൻ സാഹിത്യകാരൻ പ്രൊഫ

ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോ

ഭരണ പരിഷ്കാര കമ്മിഷന്റെ പൌര കേന്ദ്രീകൃതി സേവനങ്ങൾ സംബ ന്ധിച്ച സിറ്റിങ് മലപ്പുറം കളക്ടറേറ്റിൽ രാവിലെ കമ്മിഷൻ ചെയർമാൻ വി

അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും

ഉച്ചകഴിഞ്ഞ് പ്രത്യേക ക്ഷണിതാക്കളുമായി കമ്മിഷൻ ആശയവിനിമയം നടത്തും കണ്ണൂരിൽ ക്രിസ്മസ് ന്യൂഇയർ കൈത്തറി വസ്ത്ര പ്രദർശന വിപ ണനമേള ഇന്ന് മന്ത്രി ഇ

കണ്ണൂർജില്ലാ വനിതാമതിൽ സംഘാടകസമിതിയോഗം ഇന്ന് രാവിലെ ജില്ലാ ആസൂത്രണസമിതി ഹാളിൽ ചേരും മന്ത്രി ഇ

ജയരാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും പങ്കെടുക്കും കോഴിക്കോട് ജില്ലാ സാക്ഷരതാമിഷന്റെ ഭരണഘടനാ സാക്ഷരതാ സംഗമം ഇന്ന് വൈകീട്ട് മന്ത്രി ടി

രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

പെരിയാർ കടുവ സങ്കേതത്തിന്റെ നാൽപതാം വാർഷികാഘോഷ ങ്ങൾ നാളെ മന്ത്രി കെ

തപാൽ മേഖലയിലെ ഗ്രാമീൺ ഡാക് സേവക് ജീവനക്കാരുടെ സമരം മൂന്നാം ദിവസത്തേക്ക് കടന്നു

തപാൽ സേവനങ്ങൾ ഗ്രാമമേഖലയിൽ ഏറെക്കുറേ പൂർണമായി തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട് അഞ്ച് കിലോ കഞ്ചാവ് കടത്താൻശ്രമിച്ച രണ്ട് യുവാക്കളെ ഇടുക്കി ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് പിടികൂടി എറണാകുളം ഇടപ്പള്ളി സ്വദേശി സലിം കലൂർ സ്വദേശി ആന്റണി എന്നിവരാണ് പിടി യിലായത് കമ്പത്തുനിന്ന് വാങ്ങിയ കഞ്ചാവ് എറണാകുളത്ത് ചില്ലറ വിൽപ്പനക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പ്രതികൾ മൊഴി നൽകി വൃവസായവകുപ്പ് ഇടുക്കി കൊന്നത്തടിയിൽ നെയ്ത്ത് പരിശീലന കേന്ദ്രം ആരംഭിച്ചു വൃവസായവകുപ്പ് ജനറൽ മാനേജർ ബിജു കുര്യൻ യുവ വീവ് പദ്ധതിയിലെ പരിശീലനകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു യുവാ ക്കളെ നെയ്ത്തിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാ ക്കുന്നത് കാസർകോട് ചെമ്പേരിക്കലിലെ ഫർണിച്ചർ നിർമാണ യൂണിറ്റിൽ ബാലവേല ചെയ്തിരുന്ന മൂന്ന് കുട്ടികളെ ടാസ്ക് ഫോഴ്സ് മോചിപ്പി ച്ചു ജില്ലാ ലേബർ ഓഫീസറും സംഘവും നടത്തിയ പരിശോധനയി ലാണ് ഇതരസംസ്ഥാനക്കാരായ മൂന്ന് കുട്ടികളെ കണ്ടെത്തിയത് ദേശീയപാതയിൽ ആലപ്പുഴ ഹരിപ്പാട് ടെമ്പോ ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു

പരിക്കേറ്റവരെ കായംകുളം ഹരിപ്പാട് താലൂക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു

നോർത്ത് സൌത്ത് സെൻട്രൽ സോണുകളിൽനിന്നും തിരഞ്ഞെടുത്ത ആറ് വീതം പുരുഷ വനിതാ ടീമുകൾ ചാമ്പൃൻഷിപ്പിൽ പങ്കെടുക്കും

വിവിധ സേവനങ്ങളിൽ മികവ് പുലർത്തിയ അക്ഷയ സാരഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റു കൾ വിതരണം ചെയ്തു പത്തനംതിട്ട ആറൻമുളയിൽ പുരാതന ശില്പങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് പുരാവസ്തുവകുപ്പിന്റെ ഉദ്ഖനനം ആരംഭിച്ചു